നാളെ വാരണാസിയും സന്ദർശിക്കും

സംബന്ധിച്ചു കേസ് സി ബി

നാളെയും ന്യൂഡിൽഹിയിൽ

ഫെയറുകൾ നാളെ ആരംഭിക്കും

ജർമനിയിലെ മ്യൂണിച്ചിൽ തുടക്കമാകും നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദ് സന്ദർശിക്കും വീണ്ടും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ

പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷയ്ക്കും വമ്പിച്ച വരവേൽപ്പാണ് അഹമ്മദാബാദിൽ പാർട്ടി ഒരുക്കിയിട്ടുള്ളതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വഗ്ഹാനി പറഞ്ഞു സർദാർ വല്പഭായി പട്ടേലിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷം അദ്ദേഹം ബി ജെ

രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ് കേന്ദ്രമന്ത്രിയായിരുന്ന പി ചിദംബരം എന്നിവരെയാണ് രാഹുൽ വിമർശിച്ചത് പാർട്ടി താൽപര്യത്തെക്കാൾ മക്കളുടെ കാര്യത്തിനാണ് ഇവർ മുൻഗണന നൽകിയതെന്നായിരുന്നു രാഹുലിന്റെ വിമർശനം

പി വോട്ടർമാരോട് നന്ദി പ്രകടിപ്പിക്കുന്നതിനുവേണ്ടി നിയുക്ത എം പി ടി എൻ പ്രതാപന്റെ മണ്ഡലം പ്രിട്ട്ന് ആരംഭിച്ചു

ജെ പി അധികാരത്തിൽ വരാതിരിക്കാൻ ന്യൂനപക്ഷ സമുദായങ്ങൾ കോൺഗ്രസ്സ് മുന്നണിയ്ക്ക് വോട്ട് ചെയ്തതാണ് ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് കാരണമെന്ന് എസ്

യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇടുക്കി രാജാക്കാട് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രീനാരായണ ധർമ്മ വിചാര യജ്ഞത്തിന്റെ സംഘടനാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ഗുരുഭവനം പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകളുടെ താക്കോൽ ദാനവും നിർവ്വഹിച്ച് സംസാരിക്കുകയാരുന്നു അദ്ദേഹം

ജി ഭവനിൽ ചേരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് പ്രധാന അജണ്ട

എം ന് ഒരു സീറ്റുമാത്രം കിട്ടിയ സാഹച്ചിരുവും പശ്ചിമബംഗാളിൽ പാർട്ടി വോട്ടുകൾ ഏതാങ്ട്ട് പ്പൂർണ്ണമായും ചോർന്നു പോയതും യോഗത്തിൽ ചർച്ചാർ വിഷയമാകും

എച്ച് വില്ലേജ് ബൈസൺവാലി ചിന്നക്കനാൽ ശാന്തൻപാറ വെള്ളത്തൂവൽ ആനവിരട്ടി പള്ളിവാസൽ തുടങ്ങിയ വില്ലേജുകളിൽ റിസോർട്ടുകൾക്കും ഹോട്ടലുകൾക്കും ഇതര വ്യാപാര സ്ഥാപനങ്ങൾക്കുമെല്ലാം എൻ

സി പോലും ആവശ്യപ്പെടാതെ വൈദ്യുത കണക്ഷൻ നൽകാൻ ഇറക്കിയ ഉത്തരവ് പുനഃപരിശോധിക്കണ മെന്നാവശ്യപ്പെട്ട് വിഎസ് അച്യുതാനന്ദൻ വൈദ്യുതി വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകി

കൂടുതൽ വിവരങ്ങളുമായി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീമതി

കോ ഓപറേറ്റിവ് അക്കാഡമി ഓഫ് പ്രഫഷനൽ എഡ്യൂക്കേഷൻ സംഘടിപ്പിച്ച കരിയർ ഗൈഡൻസ് ശിൽപശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ട്രെയിൻ ഗതാഗതം ഇൻട്രോ കോട്ടയത്തെ പാലം പണിക്ക് ആലപ്പുഴ വഴിയുള്ള തീവണ്ടികൾ ഭൂരിഭാഗവും റദ്ദാക്കിയതും കുറേ തീവണ്ടികൾ ഭാഗീകമായി റദ്ദാക്കിയതും യാത്രക്കാരെ ദുരിതത്തിലാക്കി ആലപ്പുഴയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആർ

മൂന്നാർ ഗവൺമെന്റ് ഗ്സ്റ്ഹൌസിൽ നടത്തിയ സിറ്റിംഗിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ആന്റണി ഡൊമ്നിക് പരാതികൾ പരിഗണിച്ചു

മെഡിക്കൽ കോളേജിന് മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്ഥിരാംഗീകാരം ലഭ്യമായത് സംസ്ഥാന ഗവർണ്മെന്റിന്റെ കൃത്യമായ ഇടപെടലിന്റെ ഫലമാണെന്ന് മന്ത്രി എ കെ ബാലൻ വാർത്താ കുറിപ്പിൽ അറിയിച്ചു ആവശ്യമായ എല്ലാ സൌകര്യങ്ങളും മെഡിക്കൽ കോളേജിൽ സാഹചര്യത്തിലാണ് സ്ഥിരാംഗീകാരം ലഭിച്ചത് തീപിടുത്തം സുരക്ഷ കെട്ടിടങ്ങളിൽ തീപിടുത്തമുണ്ടാകുന്നത് വ്യാപകമായ സാഹചര്യത്തിൽ വൈദ്യുത സംവിധാനത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് സ്ഥാപന മേധാവികൾ ഉടമകൾ പൊതുജനങ്ങൾ എന്നിവർ സുരക്ഷാനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അറിയിച്ചു

സി സി ആസ്ഥാനത്ത് നെഹ്രുവിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടക്കും

ഇന്ത്യൻ താരങ്ങളായ അപൂർവി ചന്ദേല അൻജം മോഡ്ഗിൽ എളവേനിൽ വാലറിവൻ എന്നിവർ മത്സരരംഗത്തുണ്ട് വനിതകളുടെ പത്ത് മീറ്റർ എയർ റൈഫിൾസ് മത്സരത്തോടെയാണ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമാകുന്നത്

എ ആണ് പിടികൂടിയത്

പ്രളയധനസഹായമായി ലോകബാങ്ക് സംസ്ഥാനത്തിന് നൽകുന്ന പണം ഏതെല്ലാം മേഖലകളിലാണ് വിനിയോഗിക്കേണ്ടത് എന്ന് പഠിക്കാനാണ് സംഘം എത്തിയത്

വ്യത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി

ലൈബ്രറി കൌൺസിൽ ജില്ല ലൈബ്രറി കൌൺസിൽ സംഘടിപ്പിക്കുന്ന പത്താമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് കണ്ണൂരിൽ തുടക്കമായി മേള മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു

സമ്മേളനം സാമ്പത്തിക വിദഗ്ധൻ പ്രൊഫസർ പ്രസാദ് പട്നായിക് ഉത്ഘാടനം ചെയ്തു